ഭീകരതയ്ക്കെതിരായ നിലപാട്ടിൽ ഒരു മാറ്റവുമില്ലെന്ന് ലോക നേതാക്കളോട് പ്രധാനമന്ത്രി നീർരേന്ദ്രമോദി

കേരളത്തിൽ പാലാ ഉപതെരഞ്ഞടുപ്പിൽ വോട്ടെണ്ണൽ നാളെ അഞ്ച് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു

നിക്ഷേപ രംഗത്ത്സുതാര്യവും ലളിതവുമായ നടപടിക്രമങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ശ്രീ നരേന്ദ്രമോദിഅറിയിച്ചു കൂടുതൽവിവരങ്ങളുമായിസുനീഷ് വോയ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ധ്യക്ഷതയിൽ ആഗോള വ്യവസായ പ്രമുഖരുടെവട്ടമേശ സമ്മേളനം ന്യൂയോർക്കിൽചേർന്നു

രാഷ്ട്രീയ സ്ഥിരതയുംസുസ്ഥിരമായ നയവും നൂതന വികസന കാഴ്ചപ്പാടുകളും നിക്ഷേപ രംഗത്തെ പുതിയസമീപനങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിഅറിയിച്ചു

മാലിന്യ നിർമ്മാർജ്ജനം പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗം ചെറുകിട ഇടത്തരവൃവസായം കൃഷിതുടങ്ങിയരംഗങ്ങളിൽ നൂതന പദ്ധതികളാണ് ഗവൺമെന്റ്ആവഷ്കരിച്ച് നടപ്പാക്കുന്നത്

നിക്ഷേപത്തിനുള്ള നടപടി ക്രമങ്ങൾ ലളിതമാക്കിയതിന് വ്യവസായ മേധാവികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെഅഭിനന്ദിച്ചു മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ സംരംഭങ്ങളിൽ ധീരമായ നിലപാടാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത് നൈപുണ്യവികസനം ഡിജിറ്റൽഇന്ത്യ സമഗ്ര വികസന പദ്ധതി ഹരിതഊർജ്ജം ധനകാര്യ പദ്ധതികൾ എന്നിവകളിൽമികച്ച രീതിയിൽ നിക്ഷേപ സാധൃതകൾ ഉണ്ടെന്ന് വൃവസായ മേധാവികൾ അറിയിച്ചു

ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ഇരുവരും ചർച്ച ചെയ്തു ഉഭയകക്ഷി നിക്ഷേപവും വാണിജ്യ ഉടമ്പടിയും സംബന്ധിച്ച ചർച്ചകൾ നേരത്തേ പൂർത്തിയാക്കാനുള്ള നടപടികൾശക്തിപ്പെടുത്തും

ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ജെസീന്ത ആർഡനുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷിതലത്തിൽ വാണിജൃം മെച്ചപ്പെടുത്താനും നിക്ഷേപം വർദ്ധിപ്പിക്കാനും ധാരണയായി ഭീകരതയ്ക്കെതിരായ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകനേതാക്കളെ അറിയിച്ചു

നേരത്തെ ന്യൂസിലാന്റ് അർമീനിയ എസ്തോണിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായി ശ്രീ

പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിനാലായിരും കോടി രൂപ വായ്പയെടുത്ത ശേഷം രാജ്യം വിട്ട ചോക്സിക് സ്ത്ഭവം വിവാദമായതോടെ ആന്റിഗ്വയിൽ കുടിയേറി അവിടത്തെ പൌർത്വം സ്വീകരിക്കുകയായിരുന്നു

രാജ്യത്തെമ്പാടുമുള്ള ഇരുപതിനായിരത്തോളം സർപഞ്ചുകൾ പങ്കെടുക്കുന്ന ചടങ്ങ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും

രാത്രി എട്ട് മണിക്ക് പരിപാടിയുടെ പുനപ്രക്ഷേപണവും ഉണ്ടാവും

അഞ്ച് വർഷത്തേക്കാണ് നിയമനം ലോകബാങ്ക് സി ഇ ഒ ആയും ഇടക്കാല പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്

തുടർന്ന് വോട്ടിംഗ് യത്ത്രിത്തിലെ വോട്ടുകൾ എണ്ണിതുടങ്ങും

സിപിഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് വാർത്താസമ്മേളനത്തിൽ പേരുകൾ പ്രഖ്യാപിച്ചത്

തുടർന്ന് കുടിവെള്ള വിതരണവും നിർത്തിവച്ചു

എന്നാൽ ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഫ്ളാറ്റ്ഉടമകൾ പ്രതികരിച്ചു

കേരള കർണ്ണാടക അതിർത്തി ഗ്രാമമായ മൂലഹള്ളിയിൽ പ്രതിഷേധ സംഗമം തുടങ്ങി

ഇതേ വിഷയം ഉന്നയിച്ച് ഒക്ടോബർ അഞ്ചിന് യു ഡി എഫ് വയനാട്ടിൽ ഹർത്താൽ നടത്തും

മലേഷൃയുടെ ഡാരൻ ലിയെ തോൽപ്പിച്ചാണ് കശൃപിന്റെ മുന്നേറ്റം

ഇന്ത്യയുടെ വനിതാ താരങ്ങളായ പി സിന്ധുവും വി സൈനാ നെഹ്വാളും ആദ്യ റൌണ്ടിൽ തന്നെ പുറത്തായി

കാഠ്മണ്ഡുവിൽ ഇന്നലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ചു ബംഗ്ലാദേശ് ഭൂട്ടാൻ മാലദ്വീപ് എന്നിവയാണ് സെമിയിൽ പ്രവേശിച്ച മറ്റ് ടീമുകൾ

ഇതോടെ ഇസ്രായേലിൽ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വിരാമമാകുകയാണ് വിശദാംശങ്ങളുമായി സുനീഷ്

ന്യൂഡൽഹിയിൽ ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളുടെ അവലോകന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഊർജ്ജസഹമന്ത്രി കൂടിയായ ശ്രീ മെയ്ൻ

ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

നിക്കോളാസ് മാഡുറോയ്ക്ട്ട വാഴ്ചയെ ഒറ്റപ്പെടുത്താൻ തന്റെ അധികാരമുപയോഗിച്ച് ആവുന്നതെല്ലാം ചെയ്യുമെന്ന് ട്രംപ് പ്രസ്താവിച്ചു